ഗവൺമെന്റ് വരുത്തിയ ഭേദഗതി സുപ്രീംകോടതി ശരിവച്ചു

ഓസ്കാർ പുരസ്കാരൂങ്ങൾ പഖ്യാപിച്ചു

സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ നിയമസഭ തീരുമാനിച്ചു

പ്രഥമദൃഷ്ട്യാ കേസില്ലെങ്കിൽ മാത്രമേ കോടതിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കാനാകു എന്ന് ജസ്റ്റിസുമാരായ അരുൺ മിശ്ര വിനീത് ശരൺ രവീന്ദ്ര ഭട്ട് എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു പ്രാഥമിക അന്വേഷണം ആവശ്യമില്ലാതെ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കേസെടുക്കുന്നതിന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അനുമതി ആവശ്യമില്ലെന്നും ബെഞ്ച് പറഞ്ഞു

പട്ടിക ജാതിപട്ടികവർഗ്ഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് എതിരാണ് വിധിയെന്നും പാർട്ടി അഭിപ്രായപ്പെട്ടു

യും ആർ

എസ്സും സംവരണത്തിന് എതിരാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി കുറ്റപ്പെടുത്തി

അതിനിടെ കൊറോണ ബാധയെ തുടർന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിദ്യാർഥിനിയുടെ ഏറ്റവും ഒടുവിലത്തെ പരിശോധനാഫലം നെഗറ്റീവ് ആണെന്ന് മന്ത്രി എ

ഈ വിദ്യാർഥിനിയുടെ അടുത്ത ഫലം കൂടി നെഗറ്റീവ് ആയാൽ തുടർനടപടികൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും

പരിപാടി പ്രഖ്യാപിച്ചത്

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരുടെ നിലവിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാനും ദേശീയോദ്ഗ്രഥനത്തെ കൂടുതൽ പരിപോഷിപ്പിക്കാനും ഇത് സഹായകരമാകും ഓരോ വർഷവും രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ മറ്റൊന്നുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പരിപാടി

ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചതാണ് ഇക്കാര്യം ചൈനയിലുളള ഇന്ത്യാക്കാരെ നാട്ടിലെത്തിക്കാൻ സഹായം ചെയ്തതിനും പ്രധാനമന്ത്രി ചൈനീസ് ഗവൺമെന്റിന് നന്ദി പറഞ്ഞു

കുട്ടികളിലും കൌമാരക്കാർക്കും വിരകളാലുണ്ടാകുന്ന ആരോഗ്യപ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്

നദീമുഖ പ്രദേശം പ്രത്യേക സംരക്ഷിത മേഖലയിക്ക്റ്റൻ നിയമം കൊണ്ടുവരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിദഗ്ദ്ധ്യുമായി ആലോചിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

നാളെ രാവിലെ എട്ടു മണിക്ക് വോട്ടെണ്ണി തുടങ്ങുമെന്ന് ഡൽഹിയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഡൽഹി പൊലീസിന്റയും അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്

ഏകദേശം ഒന്നര ലക്ഷം ഹെക്ടറോളം കൃഷിയിടങ്ങളിലാണ് വെട്ടുക്കിളി ആക്രമണം ഉണ്ടായത്

അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഊർജ്ജോത്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ചതോടെ ഉഭയകക്ഷി വ്യാപാരം അമേരിക്കയ്ക്ക് അനുകൂലമാകുന്നതായും ഫോറം വ്യക്തമാക്കി

മികച്ച സംവിധായകൻ തിരക്കഥ വിദേശ ഭാഷ ചിത്രം എന്നിങ്ങനെ നാല് പുരസ്കാരങ്ങളാണ് പാരസൈറ്റ് സ്വന്തമാക്കിയത് ജോക്കറിലെ അഭിനയത്തിന് വാക്വിൻ ഫീനിക്സ് മികച്ച നടനായും നേടി ജൂഡിയിലെ മികവിന് റെനേസ വൈഗർ മികച്ച നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടു വിശദ വിവരങ്ങളുമായി ശ്രീലത

മികച്ച തിരക്കഥയ്ക്കുള്ള ഓസ്കർ ലഭിക്കുന്ന ൃആദ്യ കൊറിയൻ ചിത്രം കൂടിയാണ് പാരസൈറ്റ്

ഉത്തര പ്രവിശ്യ മുൻ മന്ത്രിയായിരുന്ന ശ്രീ

വിഘ്നേശ്വറിന്റെ നേതൃത്വത്തിലാണ് പാർട്ടി രൂപീകരിക്കുന്നത്

സണ്ണി ജോസഫ് എം എൽ

വിഷയത്തിൽപ്പ് ്ചർച്ച നടത്താമെന്ന് മന്ത്രി വി

ഡെപ്യൂട്ടി സ്പീക്കർ പി

എല്ലാ മേഖലകളിലെയും സമഗ്ര വികസനം വാഗ്ദാനം ചെയ്യുന്നതാണ് സംസ്ഥാന ബജറ്റെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

പരമേശ്വരൻ ഇന്നലെ അന്തരിച്ച ചിന്തകനും എഴുത്തുകാരനും ഭാരതീയ വിചാരകേന്ദ്രം സ്ഥാപക ഡയറക്ടറുമായ പി പരമേശ്വരന്റെ സംസ്ക്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് സ്വദേശമായ ആലപ്പുഴ മുഹമ്മയിൽ നടക്കും രാവിലെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ പൊതുദർശനത്തിന് വച്ച ഭൌതികദേഹത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു